ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയം ചൈന എതിർത്തിനെ തുടർന്ന് പരാജയപ്പെട്ടതിൽ നിരാശയുണ്ടെന്ന് ഇന്ത്യ

ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിരീക്ഷകരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും

യൂണിയൻ വിടാനുളള ബ്രെക്സിറ്റ് കരാർ പാർലമെന്റിൽ പരാജയപ്പെട്ടു

പരമ്പര ഓസ്ട്രേലിയ സ്വന്തമാക്കി

വിശദാംശങ്ങളുമായി തുളസീദാസ്

പ്രമേയം പരാജയപ്പെട്ടതിൽ നിരാഴ്ശയുണ്ടെന്ന് ഇന്ത്യ പ്രതികരിച്ചു

ഈ പ്രമേയമാണ് ചൈന വീറ്റോ ചെയ്തത് മസൂദ് അസ്ഹർ പാകിസ്ഥാനിൽ നടത്തുന്ന ഭീകരക്യാമ്പിനെക്കുറിച്ച് ലോകം അറിഞ്ഞതാണെന്നും അതിനാൽ പ്രമേയത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും കഴിഞ്ഞ ദിവസം ഇന്ത്യ യുഎന്നിൽ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യക്കുവേണ്ടി യുഎന്നിൽ പ്രമേയം അവതരിപ്പിച്ച രാജ്യങ്ങളോട് കടപ്പാടുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി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

ൃ ആഗോള സുരക്ഷ അണ്ചായുധ നിർവ്യാപനം തുട്ടങ്ങ്ടിയവയെ സംബന്ധിച്ച് ഇരുരാജ്യങ്ങളും അഭിപ്രായങ്ങൾ ്ക്കെമാറി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 ഉഭയകക്ഷി ബന്ധവും ആഭ്യന്തര ആണവ സ്ഹൃക്കരണവും ശക്തിപ്പെടുത്തുക അമേരിക്കൻ ആണവ നിലയങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരുരാജ്യങ്ങളും അഭിപ്രായങ്ങൾ കൈമാറി

ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യ പാക് പ്രതിനിധി സംഘം ഇന്നലെ അമൃത്സറിൽ എത്തി കർതാർപൂർ ഇടനാഴിയ്ക്ക് വേണ്ടിയുള്ള സാങ്കേതികതല ചർച്ചയും ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുണ്ട്

എളുപ്പവും ലളിതവുമായ പ്രവേശനം ലഭിക്കുന്നതിനും ദീർഘകാലമായി നിലനിൽക്കുന്ന പൊതുജനാവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഇത് ലക്ഷ്യമിടുന്നു

മുൻ സുപ്പീംകോടതി ജഡ്ജി ഫക്കീർ മുഹമ്മദ് ഇബ്രാഹിം കലീഫുള്ളയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് ആത്മീയ ഗുരു ശ്രീ ശ്രീ രവിശങ്കർ മുതിർന്ന അഭിഭാഷകൻ ശ്രീരാം പഞ്ചു എന്നിവർ സമിതിയിൽ അംഗങ്ങളായിരുന്നു സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബഞ്ചാണ് കേസ് മദ്ധ്യസ്ഥ സമിതിയ്ക്ക് കൈമാറിയത്

കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകരുടെ കർത്തവൃത്തെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യും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

ഉത്തർപ്രദേശ് ക്യോ്ൺഗ്രസ് അധ്യക്ഷൻ രാജ് ബബ്ബാർ മോർദാബാദിൽ നിന്ന് മത്സ്തിക്കും പാർട്ടി നേതാവ് സഞ്ജയ് സിങ്ങ് സുൽത്ത്യൻ പുരിൽ നിന്നും മുൻ കേന്ദ്രമന്ത്രി ശ്രീപ്രകാശ് ജയ്സ്വാൾ കാൻപൂരിൽ നിന്നും മത്സരിക്കും പ്രിയ ദത്ത് മുംബൈ നോർത്ത് സെന്ററിൽ നിന്നും സുശീൽ കുമാർ ഷിൻഡെ സോളാപൂരിൽ നിന്നും മത്സരിക്കും മുംബൈ സൌത്തിൽ നിന്ന് മിലിന്ദ് ദിയോറയും മത്സരിക്കും

ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലി കോൺഗ്രസ് കുടുംബത്തിൽ ഫോറൻസിക് അധികൃതർ തിരച്ചിൽ നടത്തിയാൽ അഴിമതി വ്യക്തമാകുമെന്നും അദ്ദേഹം തന്റെ ബ്ളോഗിൽ പറഞ്ഞു

ബ്രക്സിറ്റ് കരാറിൽ നിന്ന് പുറത്തുപോകാനുള്ള തീരുമാനത്തെ വീണ്ടും എംപിമാർ എതിർത്തു

ബ്രക്സിറ്റ് കരാറിൽ നിന്നും പുറത്തുപോരാനുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസാ മേയുടെ കരാർ പാർലമെന്റിൽ പരാജയപ്പെട്ടിരുന്നു

ക്ക്സീൽ ഹർജിക്കാർ സമർപ്പിച്ച രേഖകൾ ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്ന് കേന്ദ്രം ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി രേഖകളുടെ പകർപ്പെടുക്കുന്നതിൽ ഗൂഡാലോചന നടത്തിയവർ കുറ്റകൃത്യം നടത്തിയവരാണെന്ന് പ്രതിരോധ മന്ത്രാലയം ഹാജരാക്കിയ സത്യവാങ്മൂലത്തിൽ വൃക്തമാക്കി മുൻ കേന്ദ്രമന്ത്രിമാരായ യശ്വന്ത് സിൻഹ അരുൺ ഷൌറി അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയവർ ആണ് ഹർജി നൽകിയിട്ടുള്ളത് വിവരാവകാശ നിയമ പ്രകാരം വെളിപ്പെടുത്താൻ പാടില്ലാത്ത രേഖകളാണ് ഹർജിക്കാർ ഹാജരാക്കിയതെന്നും ഗവൺമെന്റ് വ്യക്തമാക്കി

വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി വിക്രം സഹായും പ്രസിദ്ധീകരണ വിഭാഗത്തിലെ ഡയറക്ടർ ജനറൽ സാധനാ റൌട്ടും ആണ് പവലിയൻ ഉദ്ഘാടനം ചെയ്തത്

മഹാത്മാഗാന്ധിയുടെ സമാഹരിച്ച കൃതികളുടെ ഡിജിറ്റൽ പതിപ്പ് പവലിയനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്

അഞ്ച് മത്സരുങ്ങ്ളുള്ള പരമ്പരയിൽ ഇന്നലെ നടന്ന അവസാന മത്സരത്തിൽ ഒട് റൺസിനാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്

പാറ്റ് കുമ്മിൻസ് റിച്ചാർഡ്സൺ മാർക്കസ് സ്റ്റോയ്നിസ് എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അതേസമയം വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ വ്രുഷാലി ഗുമ്മാഡിയെ ഒന്നിനെതിരെ രണ്ടു ഗെയിമുകൾക്ക് എസ്തോണിയൻ താരം പരാജയപ്പെടുത്തി ഡബിൾസിൽ ഇന്ത്യൻ ജോഡികളായ മനു അത്താരി സുമീത് റെഡ്ഡി സഖ്യവും മത്സരത്തിൽ നിന്ന് പുറത്തായി

ഗ്രൂപ്പ് ബി യിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഞായറാഴ്ച ശ്രീലങ്കയെ നേരിടും ഗ്രൂപ്പ് എ യിൽ ഭൂട്ടാൻ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും

വോട്ട് മിത്ര വോട്ട് സഖി എന്നിവ വഴി ഓരോ ജില്ലയിലും നീതിപൂർവ്വമായ തിരഞ്ഞെടുപ്പിന് സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ബൊൻഗൈഗോൺ ഡെപ്യൂട്ടി കമ്മീഷണർ ആദിൽ ഖാൻ അറിയിച്ചു ഇതിന്റെ ഭാഗമായി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വിവിധ വകുപ്പുകളുടെ താഴേത്തട്ടിലുള്ള ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് മുദർഗ്ഗിനിർദ്ദേശങ്ങൾ നൽകി വോട്ടിംഗ് യന്ത്രം വി വി

അസമിൽ ീട്ട് സീറ്റുകളിൽ മൂന്ന് ഘട്ടമായാണ് വോട്ടെടുപ്പ്

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഒഴുകുന്നത് തടയുന്നതിനും മറ്റുമാണ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതെന്ന് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറൽ അമിത് ജയിൻ പറഞ്ഞു